ഫിറ്റ് ഇന്ത്യാ പ്രചാരണ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡെൽഹിയിൽ തുടക്കം കുറിച്ചു

കായികരംഗത്തെ വികസത്തിന് ഗൂണുകരമായ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്ന് ഗ്ല്പർണർ പി സദാശിവം

കഴിഞ്ഞ പ്രളയക്കാലത്ത് നഷ്ടപ്പരിഹാരത്തിന് അർഹരായവർക്ക് ഒരുമാസ്ത്തിനകം തുക നല്കണമെന്ന് ഹൈക്കോടതി

പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കെട്ടിടനിർമ്മാണങ്ങൾക്ക് പുതിയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

വ്യായാമവും കായിക പരിശീലനവും നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യം അന്താരാഷ്ട്ര വേദികളിൽ ഇന്തൃയുടെ യശസ്സ് ഉയർത്തുന്ന യുവ കായിക താരങ്ങളെ ഫിറ്റ് ഇന്തൃ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ

സദാശിവം കായികരംഗത്ത് ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ പ്രശംസനീയമെന്നും ആരോഗ്യമുള്ള ജനതയെ സ്യഷ്ടിക്കാൻ കായിക രംഗത്തെ ഉന്നമനം വളരെ അത്യാവശ്യമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു ദേശീയ കായിക ദിനാചാരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗവർണർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയോട് അനുബന്ധിച്ച് വിദ്യാർഥികളും അധ്യാപകരും നടത്തിയ ഫിറ്റ്നസ് വ്യായാമ പ്രദർശനത്തിൽ ഗവർണറും പങ്കാളിയായി ഒളിമ്പ്യൻ കെ

ബീനാ മോൾ പത്മിനി തോമസ് തുടങ്ങി നിരവധി കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു

കേരളാ കോൺഗ്രസിലെ പി ജെ ജോസഫ് ജോസ് കെ മാണി തർക്കം മൂലം ് അനിശ്ചിതത്വത്തിലായ സ്ഥാനാർത്ഥി നിർണയം സമവായത്തിലൂടെ സാധ്യമാകുമെന്ന് ഉമ്മൻ ചാണ്ടി പറഞ്ഞു ഇരു വിഭാഗങ്ങളും ആവശ്യപ്പെട്ടാൽ പ്രശ്നത്തിൽ ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നഷ്ടപരിഹാരം കഴിഞ്ഞ പ്രളയകാലത്തെ അർഹരായവർക്കെല്ലാം നഷ്ടപരിഹാരം ഒരു മാസത്തിനകം നൽകണമെന്ന് ഹൈക്കോടതി ഗവൺമെന്റിന് നിർദ്ദേശം നൽകി അർഹരെന്ന് കണ്ടെത്തിയവർക്ക് കാലതാമസം കൂടാതെ നഷ്ടപരിഹാരം നല്കണം പുതിയ അപേക്ഷകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഒന്നരമാസത്തിനകം ഹൈക്കോടതിയെ അറിയിക്കണം നഷ്ടപരിഹാരം സംബന്ധിച്ച് അപ്പീൽ അനുവദിച്ചിട്ടും അത് ലഭിക്കാത്ത നിരവധി പേർ ഉണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു പൊതുഅവധി തിരുവനന്തപുരത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞ ടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾ ഗവൺമെന്റ് അർദ്ധഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നി വയ്ക്ക് അടുത്തമാസം മൂന്നിന് പൊതുഅവധി പ്രഖ്യാപിച്ചു ഇതിനു പുറമേ പോളിംഗ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സെപ്റ്റംബർ രണ്ടിനും മൂന്നിനും അവ ധി ആയിരിക്കുമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു ഡ്രൈ ഡേ അടുത്തമാസം മൂന്നിനു നടക്കുന്നു ത്ദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാം തീയതി വൈകിട്ട് ആറുമൂതൽ സെപ്റ്റംബർ നാല് വൈകിട്ട് ആറുവരെ ത്രെ ഞ്ഞെടുപ്പ് മേഖലകളിൽ സമ്പൂർണ മദ്യനിരോധനം ഏർപ്പെടുത്തിയതായി തിരുവന്തപുരം ജില്ലാ കള്കർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു

മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടേറിയറ്റ് അനക്സുകൾക്ക് മുന്നിലുള്ള ഇടുങ്ങിയ റോഡിൽ നടക്കുന്ന തെരുവോര കച്ചവടങ്ങൾ കാരണം വാഹനഗതാഗതം തടസ്സപ്പെടുന്നുണ്ടെന്നപരാതി അന്വേഷിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പൊതുഭരണവകുപ്പ് സെക്രട്ടറിയും ജില്ലാകളക്ടറും അടിയന്തിരമായി റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടു

പ്രകാശ് ജാവദേക്കറുടെ അധ്യക്ഷതയിൽ ഡൽഹിയിലെ പര്യാവരൺ ഭവനിൽ നടന്നു

കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വനം മന്ത്രി കെ

കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വമായ നിലപാടുകളാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചതെന്ന് വനംമന്ത്രി കെ രാജു അറിയിച്ചു മുഖ്യമന്ത്രി പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കെട്ടിടനിർമ്മാണങ്ങൾക്ക് പുതിയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാനമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു പ്രീ ഫബ്രിക്കേറ്റഡ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിനു ശേഷം വാർത്താസമ്മേളത്തിൽ പറഞ്ഞു പുതിയ സാങ്കേതികവിദ്യ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രചാരണ പരിപാടികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അഗ്നിരക്ഷാ സേവനവകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് സന്നിദ്ധ് സേവകരെ ഉൾപ്പെടുത്തി ജനകീയ ദുരന്ത പ്രതിരോധസേന രൂപീകരിക്കും പരിസ്ഥിതീ ലോല പ്രദേശങ്ങൾ ഉൾപ്പടെയുള്ള മേഖലകളിലെ ആവാസ വൃവസ്ഥയെ കുറിച്ച് പഠിക്കാൻ പുതിയ സമിതിയെ നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഈ സമിതി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും ശംഖുംമുഖത്ത് തിരയിൽപ്പെട്ട യൂവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണമടഞ്ഞ ലൈഫ്ഗാർഡ് ജോൺസൺന്റെ കുടുംബത്തിന് ലക്ഷം രൂപ ധന്സഹായം മന്ത്രിസഭായോഗത്തിൽ പ്രഖ്യാപിച്ചു

തിരുവനന്തപുരത്തെ വി ജെ ടി ഹാളിന് അയ്യൻങ്കാളി ഹാൾ എന്ന് നാമകരണം ചെയ്യാനും മന്ത്രിസഭ യോഗത്തിൽ തീരുമാനമായി

കോഴിക്കോട് മുക്കത്ത് എം പി ഓഫീസ് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർബാബൂ

വിധി മറികടക്കാൻ ്നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ എന്തു ചെയ്തു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ശബരിമല വിഷയത്തിൽ ഗവൺമെന്റിനെതിരായ പ്രചാരണങ്ങളെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനായില്ല എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മുല്ലപ്പള്ളി ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടുള്ള സമീപനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വൃതൃസ്ത നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് കെ

സി

സംസ്ഥാനഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം സി

എമ്മിൽ നിലനിൽക്കുന്ന ആശയപ്രതീസന്ധിയുടെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം വാദിച്ചു

മുറ്റത്തെ മുല്ല തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് സർവീസ് സഹകരണ ബാങ്കും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ മുറ്റത്തെ മുല്ല പദ്ധതി നടപ്പിലാക്കി

മൈക്രോ ഫിന്റാൻസ് തട്ടിപ്പിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സഹകരണവകുപ്പ് കുടുംബശ്രീയുമായി സഹകരിച്ചു നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്

ഇന്നലെ വൈകിട്ട് മുതൽ ജില്ലയിൽ പലയിടത്തും മഴ് പെയ്യുകയാണ്

അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല